വാർത്തകൾ വിശദമായി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം അദാനി ഗ്രൂപ്പിനെ ഏൽപ്പിച്ച തീരുമാനം പിൻവലിക്കണമെന്ന് തിരുവനന്തപുരത്ത് ഇന്നലെ ചേർന്ന സർവ്വകക്ഷി യോഗം ആവശ്യപ്പെട്ടു സ്വകാര്യവൽക്കരണത്തെ എതിർത്ത് നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരും

സംസ്ഥാന ഗവൺമെന്റ് മുഖ്യ പങ്കാളികളായ പ്രത്യേക സംവിധാനത്തെ വിമാനത്താവളം ഏൽപ്പിക്കണമെന്ന ആവശ്യം കേന്ദ്രം നിരാകരിച്ചതിലെ അതൃപ്തിയും സർവ്വകക്ഷി യോഗത്തിലെ തീരുമാനങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കത്തിലൂടെ അറിയിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു രുമ അതേസമയം തിരുവനന്തപുരം വിമാനത്താവളം പാട്ടത്തിന് നൽകുന്നത് എല്ലാ നടപടി ക്രമങ്ങളും പാലിച്ചാണെന്ന് കേന്ദ്രസഹമന്ത്രി വി

വിമാനത്താവള നടത്തിപ്പ് സ്വകാര്യ കമ്പനിക്ക് നൽകുന്നത് ആദ്യമായല്ലെന്നും തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന നിലപാടിൽനിന്ന് കേരളത്തിലെ ഭരണപക്ഷം പിന്മാറണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു ദര സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിലെ ജനകീയ ഇടപെടൽ മാതൃകാപരമാണെന്ന് മന്ത്രി കെ കെ ശൈലജ അഭിപ്രായപ്പെട്ടു ഇത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം ആരോഗ്യ കേന്ദ്രങ്ങളെക്കുറിച്ച് ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ ചൊക്ലി ആയുഷ് പ്രാഥമിക ആരോഗ്യകേന്ദ്രം ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ദരര ആധുനിക സൌകര്യങ്ങളോടെ നിർമ്മിച്ച പുനലൂർ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി ഇന്ന് നാടിന് സമർപ്പിക്കും ഉച്ച കഴിഞ്ഞ് മന്ത്രി കെ കെ ശൈലജ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ആശുപത്രി ഉദ്ഘാടനം ചെയ്യും

നൂറു പേരുടെ ഉറവിടം വ്യക്തമല്ല

കൂടുതൽ വിവരങ്ങളുമായി അനുഷ ആത്മപ്രകാശ്

മറ്റു ജില്ലകളിലും സമ്പർക്ക രോഗബാധിതരാണ് ഭൂരിഭാഗവും

രുര കോഴിക്കോട് ജില്ലയിൽ കോവിഡ് വ്യാപന സാഹചര്യത്തിൽ ആരാധനാലയങ്ങളിൽ നിയന്ത്രണം ശക്തമാക്കി

ആറടി സാമൂഹ്യ അകലവും പാലിക്കണം

കണ്ടയ്മെന്റ് സോണുകളിൽ ജുമാ നമസ്കാരമോ മറ്റ് ആരാധാലയങ്ങളിൽ ഭക്തർക്ക് പ്രവേശനമോ അനുവദിക്കില്ലെന്നും കലക്ടർ വ്യക്തമാക്കി ദരര കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ ബാങ്കുകളുടെ പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം തുടരുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു

അക്കൌണ്ട് നമ്പർ അക്കത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവസാന ഇടപാടുകൾ ദേദ കൊല്ലം വെള്ളിമൺ ലിറ്റിൽ ഏ ്ലവർ ചർച്ചിൽ കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ നടത്തിയ വിവാഹത്തിലും തലേന്നത്തെ സൽക്കാരത്തിലും പങ്കെടുത്തവർ സ്വയം നിരീക്ഷണത്തിൽ പോകണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആവശ്യപ്പെട്ടു

വയനാട്ടിൽ കോവിഡ് ചികിത്സയിലായിരുന്ന പൊഴുതന ഗ്രാമ പഞ്ചായത്ത് മുൻ അംഗവും മഹല്ല് പ്രസിഡന്റുമായിരുന്ന ഊളങ്ങാടൻ കുഞ്ഞിമുഹമ്മദ് മരിച്ചു അർബുദ രോഗത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു രുമ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏഴ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ ജൂനിയർ നഴ്സുമാർ ശമ്പള വർദ്ധന ആവശ്യപ്പെട്ട് ഇന്ന് അനിശ്ചിതകാല സമരം തുടങ്ങും ജൂനിയർ ഡോക്ടർമാർ ഉൾപ്പെടെ കോവിഡ് പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗങ്ങൾക്കും ശമ്പള വർദ്ധന നൽകിയപ്പോഴും ജൂനിയർ നഴ്സുമാരെ അവഗണിച്ചതായി സംഘടനാ നേതാക്കൾ കുറ്റപ്പെടുത്തി രുര മൂന്നാർ പെട്ടിമുടി ദുരന്തത്തിൽ മൂന്ന് മൃതദേഹങ്ങൾകൂടി ഇന്നലെ കണ്ടെടുത്തു

ദുരന്ത സ്ഥലത്തുനിന്ന് മാറി ഭൂതക്കുഴി ഭാഗത്തുനിന്നാണ് രണ്ട് ശരീരങ്ങൾ കണ്ടെടുത്തത് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ

അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പ് വരുത്താനും ഭാവി സംരക്ഷിക്കാനും ഇടപെടുമെന്ന് അദ്ദേഹം അറിയിച്ചു

രുദ കരിപ്പൂർ വിമാന ദുരന്തം അന്വേഷിക്കുന്ന ഇന്ത്യൻ വിമാനാപകട അന്വേഷണ ബ്യൂറോയ്ക്ക് സഹായം നൽകാൻ അമേരിക്കൻ ഗതാഗത സുരക്ഷാ ബോർഡ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു ഇവരുടെ സഹകരണത്തോടെയായിരിക്കും അന്വേഷണ സംഘം പ്രവർത്തിക്കുകയെന്ന് അധികൃതർ അറിയിച്ചു

ഇവരുടെ പ്രവർത്തനം മറ്റ് നഗരങ്ങൾക്കും പ്രചോദനമാകുമെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

ദേദ സപ്പൈക്കോ ഓണം ജില്ലാ ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിക്കും മന്ത്രി പി തിലോത്തമൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആദ്യ വില്പന നടത്തും

വിപണന കേന്ദ്രങ്ങളിൽ ഗൃഹോപകരണങ്ങൾ ഉൾപ്പടെ എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ലഭിക്കും

രുമ പട്ടികവർഗക്കാരുടെ ഓണക്കിറ്റ് ഓണക്കോടി വിതരണം സെക്രട്ടേറിയേറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു പാങ്ങോട് വാഴോട്ടുകാല കോളനിയിലെ ആദിവാസികളായ അപ്പുക്കുട്ടനും സരോജനിയും കിറ്റും ഓണക്കോടിയും ഏറ്റുവാങ്ങി രാമ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ഓൺലൈൻ ഡോക്യുമെന്ററി മേള ഡോക്യു സ്കേപ്പ് ഇന്ന് തുടങ്ങും മന്ത്രി എ കെ ബാലൻ മേള ഉദ്ഘാടനം ചെയ്യും

രജിസ്റ്റർ ചെയ്ത ഡെലിഗേറ്റുകൾക്ക് മറ്റന്നാൾ വൈകിട്ട് നാല് മുതൽ ചിത്രങ്ങൾ കാണാം

ലൈഫ് മിഷൻ വിവാദം തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നിവയടക്കം പ്രധാന വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായേക്കും

അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലക്കാട് നഗരസഭയിൽ നടപ്പാക്കുന്ന ശുദ്ധജല വിപുലീകരണ പദ്ധതി മന്ത്രി കെ

പുതുക്കിയ പ്രവേശന ഷെഡ്യൂൾ അഡ്മിഷൻ വെബ്സൈറ്റിൽ ലഭ്യമാണ്

കോവിഡ് പശ്ചാത്തലത്തിൽ മെയ് മാസത്തെ പരീക്ഷ മുഴുവനായി എഴുതാൻ കഴിയാത്തവർക്ക് അവസരം നഷ്ടമായ വിഷയങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം ഇവരെ റഗുലർ വിഭാഗമായി പരിഗണിക്കും

കോവിഡ് പശ്ചാത്തലത്തിൽ താൽക്കാലിക ജീവനക്കാർക്ക് എക്സ്ഗ്രേഷ്യ നൽകാനാവശ്യമായ തുകയും ഇതിലുണ്ട്